സംസ്ഥാനത്ത് പൂർണ്ണമായും നടപ്പിടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വിമാന ടിക്കറ്റ് നിരക്കൂക്ൾ ക്യാൻസലേഷൻ ഫീസ് ഈടാക്കാതെ മടക്കി ന്റ്ല്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം

രാഹുൽ ഗാന്ധി എംപി രാജ്യത്ത് രോഗപരിശോധന വ്യാപകമാക്കണമെന്നും നിർദ്ദേശം

വ്യോമ റെയിൽ ഗതാഗതം ഉണ്ടാവില്ല അന്തർജില്ലാ യാത്രയും സംസ്ഥാനക്കു വിട്ടുള്ള യാത്രയും അനുവദിക്കില്ല

ആരാധനാലയങ്ങൾ സിനിമാതിയേറ്റർ ആളുകൾ കൂടുന്ന പൊതു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണം തുടരും

ഇപ്പോൾ ഹോട്ട്സ്പോട്ട് ആയി കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുവനന്തപുരത്തെ ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്രത്തോട് അനുമതി തേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

എയർലൈൻ കമ്പനികൾക്കാണ് ഇത് സംബന്ധിച്ചു നിർദ്ദേശം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകിയത്

ലോക്ക്ഡൌൺ മാത്രം കൊണ്ട് കോവിഡ് പ്രതിരോധ്ം സാധ്യമാകില്ലെന്ന് പറഞ്ഞ ശ്രീ

കോവിഡ് പ്രതിസന്ധിയെ രാജ്യം ഒന്നിച്ചു നേരിടണമെന്നും ഇതിനായി സംസ്ഥാനങ്ങൾക്ക് മതിയായ വിഭവശേഷി അനുവദിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി

സി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

അഴിമതി മാത്രമല്ല മലയാളികളുടെ ജീവൻ കൂടി അപകടത്തിലാക്കുന്ന ക്രിമിനൽ നടപടിയാണ് ഇതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്രതിപക്ഷ ആരോപണങ്ങൾ എല്ലാം മുഖ്യമന്ത്രി ശരിവയ്ക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കേണ്ട സമയത്തേ പ്രകടിപ്പിക്കാവൂ എന്നും മന്ത്രീ പ്റ്ഞ്ഞു

തിരുവനന്തപുരം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കേരള സംസ്ഥാന വനിതാ വികസന കോർപറേഷനുമായി ചേർന്നാണ് ബാലമിത്രം ആരംഭിച്ചിട്ടു ള്ളത് പ്രത്യേകിച്ചും ഐ ടി മേഖലയിലെ വനിതാ ജീവനക്കാരെ ലക്ഷ്യമിട്ടാണ് ബാല മിത്രം പദ്ധതി ആരംഭിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി

നിരീക്ഷണകാലത്ത് തങ്ങൾക്കു ലഭിച്ചു സംസ്ഥാന സർക്കാർസേവനങ്ങളെ ബിബിസി ചാനലിലൂടെ അവർ പ്രശംസിച്ചു ഇതിനിടെ കോവിഡ് മുക്തമായ ഇടുക്കിയുടെ അതിർത്തി മേഖലകളിൽ പരിശോധനകൾ ശക്തമായി തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

മാഹി അതിർത്തിയിൽ കർശന് വാഹന പരിശോധന തുടരുകയാണ്

കാസർകോട് ഇൻട്രോ ലോക്ഡൌണിൽ മംഗ്ലുരുവിലെ ബന്ധുവീട്ടിൽ കുടുങ്ങിയ കുട്ടികളെ കാസർകോട്ടെ മാതാപിതാക്കളുടെ അടുത്തെത്തിച്ച് കർണാടക പൊലീസ് മംഗ്ലൂരു ഈസ്റ്റ് പൊലീസാണ് കുട്ടികളെ കേരള അതിർത്തിയായ തലപ്പാടിയിൽ എത്തിച്ചത്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് പ്രതിനിധി പി ജഗന്നിവാസൻ

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കവരത്തി സെക്രട്ടറിയേറ്റിൽ ചേർന്ന ഉന്നതതല സമിതി യോഗം വിലയിരുത്തി കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം

എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ടെന്ന് ന്യൂഡൽഹിയിലെ ഗുരുനാനാക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ എൻ

ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ലോക്ക് ഡൌൺ കാലയളവിൽ പ്രീമിയം അടക്കാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കുറക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനം

കൃഷകൃഷക എസ്എസ്സി രാജ്യത്ത് നിലവിലുള്ള ലോക്ക് ഡൌൺ നിയന്ത്രണങ്ങളും സാമൂഹിക അകലം പാലിക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും പരിഗണിച്ച് സ്റ്റാഫ് സെലക്ഷൻ പരീക്ഷകളുടെ തീയതികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നുള്ള പുനക്രമീകരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ പരീക്ഷാകേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്തത് കണക്കിലെടുത്താണ് തീരുമാനം

എന്നാൽ ന്യൂയോർക്കിൽ രോഗതീപ്പ്രത്യ ് കുറയുന്നതായാണ് റിപ്പോർട്ട്

പുതിയതായി രോഗം ബാധിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന കുറവ് ഇറ്റലിയ്ക്ക് ആശ്വാസം പകരുന്നതാണ്

സ്വർണ്ണവിലയിൽ മാറ്റമില്ല

ആയതിനാൽ പൊതുജനങ്ങൾ കാർമേഘം കണ്ട് തുടങ്ങുന്ന സമയം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കേണ്ടതാണ്